പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ച നടത്തി

ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയെ നേരിടും

ഷൂട്ടൌട്ടിൽ മറി കടന്ന് ബ്രസീൽ സെമിയിൽ

അ്ഗ്രാഷ്ട്ര തലവൻമാരെ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ സ്ഥാഗതം ചെയ്തു ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ചു നടത്തി

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ ശ്രീ നരേന്ദ്രമോദിയെ ട്രംപ് അഭിനന്ദിച്ചു സൈനിക മേഖല ഉൾപ്പെടെ വിവിധ രംഗങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനാകുമെന്ന് യു എസ് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു ജപ്പാൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് എന്നിവരുമായി ജപ്പാനും അമേരിക്കയും ഇന്ത്യയും ഉൾപ്പെട്ട ത്രിരാഷ്ട്ര ഗ്രൂപ്പിനെ സംബന്ധിച്ചും ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തി ഈ ഗ്രൂപ്പിന്റെ ഭാഗമാകുന്നതിൽ ഇന്ത്യ കല്പിക്കുന്ന പ്രാധാനൃത്തെകുറിച്ച് ശ്രീ മോദി എടൂത്ത് പറഞ്ഞു സമാധാനം സ്ഥിരത അടിസ്ഥാന സൌകര്യ വികസ്നം ഇന്തോ പസഫിക് മേഖലയിലെ പുതിയ ഉത്തരവാദ്ദീത്തങ്ങൾ എന്നിവ സംബന്ധിച്ചാണ് യോഗം ചർച്ച ചെയ്തരി്ന്റ് വിദേശകാരൃ സെക്രട്ടറി വിജയ് ഗോഖലെ മാധ്യമങ്ങളോട് പ്റഞ്ഞു

ഇന്ത്യയ്ക്ക് ഒരു ബില്ല്യൺ ഉപഭോക്താക്കൾ ഉണ്ടെന്നും ഇരു രാജ്യങ്ങളും ആശയവിനിമയ ശൃംഖല സംയോജിപ്പിക്കണമെന്നും ശ്രീ നരേന്ദ്രമോദി ഉൌന്നിപ്പറഞ്ഞു ആഗോള സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ബ്രിക്സ് രാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി അനൌപചാരിക ചർച്ച നടത്തി

മാനവികത നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് ഭീകരവാദമെന്ന് അനൌപചാരിക ചർച്ചയിൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സൌദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൌദുമായുംശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി ഗൾഫിലെ സ്ഥിതി ഗതികൾ എണ്ണുവിലയിൽ വരുത്തിയ പ്രഭാവം ഇരുനേതാക്കളും ചർച്ച ചെയ്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്രഗവൺമെന്റും ആന്ധ്രാപ്രദേശ് ഗവൺമെന്റും ഇന്നലെ ന്യൂഡൽഹിയിലാണ് ലോകബാങ്കുമായി ഉടമ്പടിയിൽ ഒപ്പുവച്ചത് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ഈ വിഷയത്തിൽ ശക്തമായ സമർപ്പണ മനോഭാവം പ്രകടിപ്പിച്ചതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു

സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ഭീകരവാദവും അക്രമോത്സുകതയും അസഹിഷ്ണുതയും അപ്രോത്സാഹിപ്പിക്കുന്ന പ്രവണത ഇന്ത്യ നിരന്തരം നിരീക്ഷിച്ചു വരുന്നതായി ഐക്യരാഷ്ട്രസഭയി ലെ ഇന്ത്യയുടെ സ്ഥിര ഡെപ്യൂട്ടി പ്രതിനിധി കെ

ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ നടത്തിയ അനൌപചാരിക ചർച്ചയിലാണ് ശ്രീ നാഗരാജ് നായിഡു ഇക്കാര്യം സൂചിപ്പിച്ചത്

ന്യൂഡൽഹിയിൽ നമാമി ഗംഗെ ശുചീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇതുപോലെ ഗംഗാനദി ശുചീകരണത്തിലും നേട്ടം കൈവരിക്കണമെന്നും കേന്ദ്രമന്ത്രി പുറ്റഞ്ഞു ഗംഗയെ കൂടാതെ യമുന കാളി ട്ട്ഗീരഥി അളകനന്ദ എന്നീ നദികളേയും പദ്ധതിയിൽ ഉൾപ്പെട്ടുത്തുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ജലശക്തി സഹമന്ത്രി രത്തൻലൂാൽ കട്ടാരിയ പറഞ്ഞു

ബി ജെ പി അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

ഒഡീഷ തീരത്തെ ചന്ദിപ്പൂരിലെ വിക്ഷേപണത്തറയിൽ നിന്നായിരുന്നു പരീക്ഷണം മിസൈലിന് അഞ്ഞൂറ് മുതൽ ആയിരം ക്കില്ലോ വരെ ആണവായുധം വഹിക്കാം

രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ജനങ്ങളുമായി ശ്രീ മോദി പരിപാടിയിലൂടെ ആശയങ്ങൾ പങ്കുവയ്ക്കും

പരിപാടിയിലൂടെ പ്രധാനമന്ത്രി വിവിധ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്

ദിവ്യാംഗൻ വിഭാഗത്തിന് മുൻഗണന നൽകാൻ ഗ്ഗ്വൺക്മന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നുപ്പൂർസ് പറഞ്ഞു ദിവ്യാംഗൻ വിഭാഗത്തിന് സാധ്യമായ എല്ലാ പിന്തു്ണ്യും സഹായവും തന്റെ ഗവൺമെന്റ് ചെയ്യുമെന്ന് ദക്ഷിണ ബോംബെയിൽ കാഴ്ചവൈകല്യമുള്ളവരുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഫട്നാവിസ് ഉറപ്പ് നൽകി

ജീവനക്കാരുടെ താൽപര്യം അനുസരിച്ച് സ്ഥലംമാറ്റം നടത്തുന്നതിന്റെ ഭാഗമായാണ് ക്യാമറയുടെ നിരീക്ഷണത്തിൽ നടന്ന കൂടിക്കാഴ്ച

സംഭവസ്ഥലത്ത് ്ട്രിന്ന് ഇയാളുടെ മൃതദേഹവും രേഖകളും ആയ്യുധങ്ങളും വെടിക്കോപ്പുകളും ചില കണ്ടെടുത്തിട്ടുണ്ടെന്നും പ്പൊലീസ് ആകാശവാണിയോട് പറഞ്ഞു കൊല്ലപ്പെട്ട അജ്ഞാതന്ട് ഏതെങ്കിലും ഭീകര സംഘടനയുമായി ബന്ധമുണ്ടോയെന്ന കാർപ്പ് അന്വേഷിച്ചുവരികയാണെന്നും പൊലീസ് അറിയിച്ചു

ദക്ഷിണ കശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ ചരിത്രപ്രസിദ്ധമായ മുഗൾറോഡിലാണ് അപകടമുണ്ടായത്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

സി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക പോരാട്ടം വൈകിട്ട് മൂന്ന് മണിക്ക് ദർഹാമിലാണ് മൽസരം സെമി സാധ്യത നിലനിർത്തണമെങ്കിൽ ശ്രീല്ല്ക്കയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്

ഇതിന്കും പുറത്തായ ദക്ഷിണാഫ്രിക്ക ആശ്വാസ ജയത്തിനുവേണ്ടിയാണ് ഇ്റങ്ങുന്നത്

നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾരഹിത സമനില പാലിച്ചതിനെ തുടർന്നാണ് മൽസരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടന്നത് ബ്രസീലിന് നാല് കിക്കുകൾ ലക്ഷൃത്തിലെത്തിക്കാനായപ്പോൾ പരാഗ്വെയ്ക്ക് മൂന്ന് ഗോൾ നേടാനേ കഴിഞ്ഞുള്ളൂ